പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും

ഒരു ലക്ഷത്തി അയ്യായിരം കോടി രൂപ പോയവർഷത്തെ ഇതേ സമയത്തെ നികുതി പിരിവിനേക്കാൾ എട്ട് ശതമാനം കൂടുതൽ

സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും

റെയിൽവേ സാമൂഹ്യനീതി മന്ത്രാലയം വിനോദസഞ്ചാരം ആരോഗ്യം തുടങ്ങിയ വകുപ്പുകളുടെ ഉപധനാഭ്യർത്ഥനകൾ സമ്മേളനം പരിഗണിക്കും നിരവധി ബില്ലുകളും സമ്മേളനത്തിൽ പരിഗണിക്കും

മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ എന്നിവർ ഈ വിഷയങ്ങളിൽ അയച്ച കത്തുകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം

സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുവരികയാണെന്നും ഇറാൻ അധികൃതരുമായി സ്ഥാനപതി കാര്യാലയം ബന്ധപ്പെട്ടെന്നും വിദേശകാര്യ സഹമന്ത്രി വി

തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂർ വിഴിഞ്ഞം മേഖലയിൽ നിന്നുള്ളവർ കൂടുങ്ങിക്കിടക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് മത്സ്യബന്ധന വിസയിൽ നാലു മാസം മുമ്പാണ് ഇവർ ഇറാനിൽ എത്തിയത്

ഇവരെ നാട്ടിലെത്തിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചു

ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തത് ഇറാനിലാണ്

ലോകാരോഗ്യ സംഘടന കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്

ഉദ്യോഗസ്ഥർ വെറും കണക്കെഴുത്തുകാരല്ല സാങ്കേതിക പരിചയമുള്ളവർ കൂടിയാകണം

ഒരേയിടത്തു തന്നെ നിലയുറപ്പിക്കാതെ പുതിയ സാങ്കേതികവിദ്യകൾ പരിചയിച്ച് കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ തയ്യാറാകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു

ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു ഏറ്റുമുട്ടൽ കരസേനയും സി

ഹിസ്ബുൾ മുജാഹിദ്ദിൻ ഭീകരരായ ജഹാംഗീർ അഹമ്മദ്വാനി ഉസൈർ അമിൻ ജെയ്ഷെ മുഹമ്മദ് ഭീകരനായ രാജാ ഉമർ എന്നിവരാണ് കൊല്ലപ്പെട്ടത് മൂന്നുപേരും ജമ്മു കശ്മീർ സ്വദേശികളാണെന്നും പോലീസ് അറിയിച്ചു

ബി എസ്

ഈ മാസം ഏഴു വരെ പരീക്ഷയെഴുതാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് പിന്നീട് പരീക്ഷയെഴുതാനുള്ള അവസരം നൽകും ഇതിനായി വിദ്യാർത്ഥികളുടെ വിവരം നൽകാൻ ്സ്കൂളുകളിലെ പ്രധാനാധ്യാപകരോടും വിദ്യാഭ്യാസ ഡിയറ്ക്ടറേറ്റിനോടും ആവശ്യപ്പെട്ടതായും സി

പ്രദേശം ശാന്തവും സമാധാനപരവുമാണ് അതിനാൽ ജനങ്ങൾ ശാന്തത പാലിക്കണമെന്നും ഡൽഹി പോലീസ് അറിയിച്ചു

സഭാ ടിവിയുടെ ഔദ്യോഗിക ലോഞ്ചിങ് ഈ സമ്മേളനത്തിൽ നടക്കും

തിരുവനന്തപുരം എസ്

പി യിൽ ക്രൈം ബ്രാഞ്ച് മേധാവി ടോമിൻ ജെ തച്ചങ്കരിയുടെ നേതൃത്വത്തിലാണ് പരിശോധന

പന്ത്രണ്ടായിരത്തിലേറെ വെടിയുണ്ടകൾ കാണാതായി എന്നാണ് സി

ജി റിപ്പോർട്ട്

ബൌളർമാർ തിളങ്ങിയെങ്കിലും തുടർച്ചയായി ര്ണ്ടാം ടെസ്റ്റിലും ബാറ്റ്സ്മാൻമാർ പരാജയപ്പെട്ടു

പുനെ സാവിത്രി ഫുലെ സർവകലാശാല രണ്ടാം സ്ഥാനത്തും പട്യാല പഞ്ചാബി സർവകലാശാല റണ്ണർ അപ്പുമായി

ഐ ടി യെ പ്രതിനിധീകരിച്ച് ഇന്ത്യയുടെ വേഗറാണി ദ്യുതി ചന്ദും പങ്കെടുത്തു

എസ് താലിബാൻ സമാധാന കരാറിന്റെ ഭാഗമായി അഫ്ഗാൻ ജയിലുകളിൽ കഴിയുന്ന തടവുകാരെ വിട്ടയ്ക്കാനാകില്ലെന്ന് അഫ്ഗാൻ പ്രസിഡന്റ് അഷറഫ് ഘനി

അയ്യായിരം താലിബാൻ തടവുകാരെ വിട്ടയക്കണമെന്നും പകരം താലിബാൻ ബന്ദിയാക്കിയ ആയിരം പേരെ വിട്ടയക്കാമെന്നുമായിരുന്നു സമാധാന കരാറിന്റെ ധാരണ ഖത്തറിൽ ഇന്നലെയാണ് അമേരിക്കയും താലിബാനും കരാറിൽ ഒപ്പിട്ടത്

വെള്ളിയാഴ്ച ധനമന്ത്രി ഹിമ്ന്ത് ബിശ്വാസ് ശർമ്മ ബജറ്റ് അവതരിപ്പിക്കും

ഗൌതം ബുദ്ധനഗറിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ബി

എസ് ഉദ്യോഗസ്ഥനായ രാജീവ് രഞ്ജൻ ഇത്രിത് ഹുസൈൻ റാഫിക്കി എന്നിവരാണ് പിടിയിലായത്

കുമളി പശുപ്പാറ റൂട്ടിലോടുന്ന സ്വകാര്യ ബസിനു പുലർച്ചെ രണ്ടു മണിയോടെ തീ ്പിടിക്കുകയായിരുന്നു പോലീസും നാട്ടുംകാരും അഗ്നിശമന സേനയും ചേർന്ന് തീ പൂർണ്ണമായും അണച്ചു എങ്കിലും ബസിനുള്ളിൽ കിടന്ന ക്ലീനറെ രക്ഷിക്കാനായില്ല

ഇന്ന് കാസർകോട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം എറണാകുളം കോട്ടിയും ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ വേനൽമഴയ്ക്ക് സാധ്യതയുട്ടണ്ട്സ് ്കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു അഞ്ച് വരെ മധ്യകേരളത്തിൽ പ്ട്ലയിടത്തും ചെറിയ തോതിലുള്ള മഴയ്ക്കും സാധ്യതയുണ്ട്